രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ഗുരുദേവ ദർശനങ്ങളിലുടെ സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി എം

സംവരണം നീട്ടണമെന്ന് പ്രമേയം ചർച്ച ചെയ്യാൻ നിയമസഭയുടെ പ്രിയ്യേക സമ്മേളനം നാളെ ചേരും

കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസും സി

എമ്മും ശ്രമിക്കുന്നതെന്ന് ബിജെപി

സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച രാത്രി നടത്തം പരിപാടിയിൽ വനിതകളുടെ മികച്ച പങ്കാളിത്തം

ഇന്ന് വൈകിട്ട് തുറക്കും

ജാതീയ വേർതിരിവുകൾ ഇല്ലാതാക്കണം ഇതിന് നിയമങ്ങൾ മാത്രം പോര രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഭരണ നിർവ്വഹണ ശേഷിയും വേണം

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ചേർത്തണയ്ക്കാൻ മത പുരോഹിതർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നൂറ് അദ്ദേഹം ആവശ്യപ്പെട്ടു

ജാതീയ വേർതിരിവില്ലാത്ത് സമൂഹമെന്ന മഹത്തായ ആശയത്തിന് മാതൃകയാകാൻ ഭാരതത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു

വൈകിട്ട് നാലിന് മാർ ഇവാനിയോസ് ക്യാമ്പസിൽ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ മടങ്ങും

പി ഡി സതീശൻ പൌരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്യരുതെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്ന് കോൺഗ്രസ് അംഗം വി ഡി സതീശൻ സ്പീക്കർക്ക് നോട്ടീസ് നൽകി നാളെ നടക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം

എമ്മും ശ്രമിക്കുന്നതെന്ന് മിസോറാം മുൻ ഗവർണ്ർ കുമ്മനം രാജശേഖരൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മൂലൃങ്ങളെ തകർക്കാൻ മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പി ആലപ്പുഴ ജില്ലാ കമ്മറ്റി സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ക്ഷേത്രതന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി എ

മേൽശാന്തി എത്തി ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷം തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താൻ അനുവദിക്കും

പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങി കോട്ടയം ജില്ലയിൽ ഇന്നും നാളെയും എല്ലാ തദ്ദേശ്രഭരണ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികളുടെയും സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുട്ടുയും യോഗം ചേർന്ന് പിന്തുണ ഉറപ്പാക്കും

ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്

കൂടത്തായി കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പരയിലെ ആദ്യകുറ്റപത്രം നാളെ താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കും കേസിലെ പ്രധാന പ്രതി ജോളിയുടെ ആദ്യഭർത്താവ് പൊന്നമറ്റം റോയ് തോമസ് സയനൈഡ് ഉള്ളിൽ ചെന്ന് മരിച്ച കേസിലാണ് ആയിരത്തോളം പേജുകളുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്

എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ മൂന്ന് യുവാക്കളും മരിച്ചു

ഇവരെ വിദഗ്ദ്ധി ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗ്ഗം ക്കൊണ്ടുപോകും

മറ്റു സംസ്ഥാന ഘടകങ്ങളെയും പിന്നിലാക്കിയാണ് ഐ

എ ദേശീയ ഘടകത്തിന്റെ അവാർഡുകൾ കേരള ഐ എം എ നേടിയത് കേരഗ്രാമം പദ്ധതി കേരഗ്രാമം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുമെന്ന് മന്ത്രി വി

അമ്പലപ്പുഴയിൽ കേര കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാളികേര മിഷനിൽ ഉൾപ്പെടുത്തി പത്തു കൊല്ലം കൊണ്ട് രണ്ട് കോടി ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ നടുമെന്നും മന്ത്രി പറഞ്ഞു

ആഘോഷങ്ങൾക്കു തുടക്കമിട്ട് ഇന്ന് വൈകിട്ട് മൂന്നിന് നഗരസഭ സ്ത്ര്പ്തി കവാടവും മന്ദിരവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ്ക്രി

നഗരസഭ ടൌൺഹാളിൽ ന്ട്ക്കുന്ന മൂന്നു ദിവസത്തെ പരിപാടികൾ ബുധനാഴ്ച സമാപിക്കും

നാടൻ ഭക്ഷണമേളയും ഫാം ടെസ്റ്റും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് കബഡി ലീഗ് സീസൺ കൊല്ലം സൂര്യകാന്തി ഫൌണ്ടേഷൻ കൊല്ലത്ത് സംഘടിപ്പിച്ച ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ മൂന്നിൽ ഇന്ത്യൻ റെയിൽവേസ് ജേതാക്കളായി പുരുഷവിഭാഗത്തിൽ സി ഐ